പ്രവർത്തനങ്ങൾ ഊർജ്ജിതം ക്യാമ്പുകൾ വിട്ട് നിരവധി പേർ സ്വസതിയിലേക്ക്

പ്രളയക്കെടുതി നേരിടുന്ന്തിൽ സംസ്ഥാന ന് ഗവൺമെന്റ് വീഴ്ച്ച വരുത്തിയതായി പ്രതിപക്ഷ നേതാവ് രമേശ്ച്ചെന്നിത്തല

സ്വീകരിക്കാൻ തയ്യാറാകണമെന്ന് കോൺഗ്രസ്സ് പ്രവർത്തക സമിതി അംഗം എ

ആന്റണി

ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് നാലാം സ്വർണ്ണം

സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടതിനെതുടർന്ന് നിരവധിപേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് മടങ്ങി മിക്കവരും വീട് ശുചീകരണ പ്രവർത്തനങ്ങളിലാണ് സന്നദ്ധ സംഘടനകളും ഗവൺമെന്റ് ഏജൻസികളും സഹായവുമായി രംഗത്തുണ്ട് ദുരിതാശ്ചാസ ക്യാമ്പുകളിൽ ആവശ്യമായ എല്ലാ ആരോഗ്യ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്

ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ വീതം സഹായധനം നൽകിയാവും വീട് നിർമിക്കുകയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളന്ത്രിൽ പറഞ്ഞു

ജില്ലാ ഭരണകൂടം നൽകുന്ന പട്ടികയിലുള്ളവർക്കാണ്ട് വീട് വച്ച് നൽകുക അതാതു പ്രദേശത്തെ സൃഹകൃരണ സംഘങ്ങൾക്കാണ് മേൽനോട്ട ചുമതല

മൂന്നു മാസം കൊണ്ട് പൂർത്തിയാക്കും

നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നത് അന്തിമ ഘട്ടത്തിലാണെന്നും ജില്ലാ കളക്ടർ അഭിപ്രായപ്പെട്ടു

ഓഖിയിൽ സംഭവിച്ച അതേ ദുരന്തം തന്നെയാണ് പ്രളയത്തിന്റെ കാര്യത്തിലും നടന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു സാധ്യതകൾ മുൻകൂട്ടി ദുരന്ത അറിഞ്ഞുവെന്നും മുന്നൊരുക്കങ്ങൾ നടത്തിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു

ഇതിനായി മുൻകാല നയങ്ങളിൽ തിരുത്തൽ വരുത്തണ്മെങ്കിൽ അത് സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തിന്റെ പുനർനിർമ്മാണത്തിനായി എവിടെനിന്നു പണം ലഭിച്ചാലും അത് സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

പ്രളയക്കെടുതിമൂലം ് ദുരിതാശ്ചാസ കൃാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് മിക്കവരും ചെങ്ങന്നൂരിലും സ്ഥിതി വൃത്യസ്തമല്ല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആളുകളെ ലഭിക്കാത്തതിനാൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ മൂന്നാം ഘട്ടം മുടങ്ങി വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി ആർ

വിദേശസഹായം സ്വീകരിക്കുന്നതിനു തടസം ഉണ്ടെങ്കിൽ അതു ഗൌരവത്തോടെ കണ്ട് മാറ്റം വരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ജില്ല ഭരണകൂടത്തിന്റെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ശുചികരണ പ്രവർത്തനങ്ങൾ തുടരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആകാശ്വാണി പത്തനംതിട്ട പ്രതിനിധി ബിജി വർഗ്ഗീസ്

ഷൂട്ടിംഗിൽ രാഹി സർനോ ബാതാണ് സ്വർണ്ണം കരസ്ഥമാക്കിയത് ഷൂട്ടിംഗിലെ സ്വർണ്ണം വെള്ളി വെങ്കലം എന്നിവയ്ക്കു പുറമെ ഗുസ്തിയിലും സെപക് ത്രോയിലും ഇന്ത്യ മെഡലുകൾ നേടി കൂടുതൽ വിവരങ്ങളുമായി വിനോദ്

ഷൂട്ടിംഗിൽ രാഹിയുടെ ഒപ്പം ഫൈനലിൽ പ്രവേശിച്ച മറ്റൊരു ഇന്ത്യൻ താരം മനു ഭാക്കറിന് ആറാം സ്ഥാനമേ നേടാനായുള്ളു

ഇത് ലോക റെക്കോർഡാണ്

ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായിരുന്ന ദീപ കർമാർക്കർ ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സിന്റെ ഫൈനലിൽ നിന്ന് പിൻവാങ്ങി കാൽമുട്ടിലെ പരിക്ക് അധികരിച്ചതാണ് കാരണം